വലയ സൂര്യഗ്രഹണം

സൂര്യഗ്രഹണ് വീക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ സജ്ജമായി

നാളെ രാവിലെ കന്യാകുമാരിയില്ലെ വിവേകാനന്ദ കേന്ദ്രം സന്ദർശിച്ച ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്കു മടങ്ങും

പൌരത്വനിയമഭേദഗതി പൌരത്വനിയമഭേദഗതി വിഷയത്തിലുള്ള വിയോജിപ്പ് കാരണം ഗവൺമെന്റ് പരിപാടികളിൽ ഗവർണറെ ക്ഷണിക്കാതിരിക്കുകയോ ബഹിഷ്കരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു പദവിയിലിരിക്കുന്നവർ എന്ത് പറയണമെന്ന് അവരാണ് തീരുമാനിക്കേ തെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പൌരത്വ നിയമഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ്സും ഇടതുപക്ഷവും യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ കെ

സി സി അദ്ധ്യക്ഷന് അഭിപ്രായ വ്യത്യാസമുള്ളത് സംബന്ധിച്ച് പ്രതികരിക്കാനില്ലെന്നും മന്ത്രി വ്യക്തമാക്കി